സരസ്വതി അമ്മ ആകാശവാണി മുൻ ഡെപ്യൂട്ടി സ്റ്റേഷൻ ഡയറക്ടറും മഹിളാലയം പരിപാടിയുടെ ശിൽപ്പിയും അവതാരകയുമായിരുന്ന എസ്

ശ്രോതാക്കൾക്കിടയിൽ മഹിളാലയം ചേച്ചി എന്ന് അറിയപ്പെട്ടിരുന്ന സരസ്വതി അമ്മ വിദ്യാലയങ്ങളിൽ ആകാശവാണിയുടെ ആഭിമുഖൃത്തിൽ കുട്ടികളുടെ ഗായകസംഘം രൂപവൽക്കരിക്കുന്നതിന് നേതൃത്വം നൽകി

ഭ്രൂതിക ശരീരം നാളെ ഉച്ച തിരിഞ്ഞ് മൂന്നിന് തിരുവനന്തപുരം അക്കാശവാണി അങ്കണത്തിൽ പൊതുദർശനത്തിനായി വയ്ക്കും